ആദായനികുതി ഘടന ലളിതമാക്കാൻ ബജറ്റിൽ നിർദ്ദേശം

സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതാണ് ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേന്ദ്രനികുതിയിൽ നിന്നുള്ള സംസ്ഥാന വിഹിതത്തിൽ ഇടിവു വരുന്നത് ആശങ്കാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ജനങ്ങളുടെ വരുമാസ്സ് ദ് വർദ്ധിപ്പിക്കുന്നതിനും വാങ്ങൽ ശേഷി മെച്ചപ്പെടുത്തുന്നുതിനു് പ്രാധാന്യം നൽകുന്ന ബജറ്റ് പൌരന്മാർക്ക് സുഗമമായു് ജീവിതം വാഗ്ദാനം ചെയ്യുന്നു

അടുത്ത സാമ്പത്തിക വർഷത്തിൽ പത്ത് ശതമാനം ജി ഡി പി വളർച്ച ഉറപ്പു വരുത്തുന്നതാണ് കേന്ദ്രബജറ്റെന്നും ധനമന്ത്രി പറഞ്ഞു

ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായും ധനമന്ത്രി പറഞ്ഞു

അഞ്ച് ലക്ഷം മുതൽ ഏഴര ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം നികുതിയായിരിക്കും ഉണ്ടാവുക

കോർപ്പറേറ്റ് നികുതിയിലും ഇളവുകൾ വരുത്തിയിട്ടുണ്ട്

രാജ്യത്ത് പുതിയ അഞ്ച് സ്മാർട്ട് സിറ്റികൾ കൂടി ആരംഭിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ശ്രീമതി നിർമലാ സീതാരാമൻ അറിയിച്ചു

കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചരക്ക് പ്ലൂ ന്റീക്കത്തിനായി പൊതു സ്ഥകാര്യ പങ്കാളിത്തതോടെ ഇന്ത്യൻ റെയിൽവെയുമായി സഹകരിച്ച് കിസാൻ റെയ്്ൽ പദ്ധതി നടപ്പാക്കും കാർഷികോൽപന്നങ്ങൾക്കായി ഓൺലൈൻ വിപണിയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമായി ചേർന്ന് കൃഷി ഉഡാൻ പദ്ധതിയും ആവിഷ്കരിക്കും നബാർഡിന്റെ പുനർവായ്പാ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാണിജ്യ മേഖലകളുടെ പ്രവർത്തനം വിലയിരുത്താൻ പ്രത്യേക സംവിധാനം ഉണ്ടാകും

ബി ഐ ബാങ്കിന്റെ എല്ലാ ഗവൺമെന്റ് ഓഹരികളും വിറ്റഴിക്കും

യുടെ ഗവൺമെന്റ് ഓഹരികളിൽ കുറച്ച് വിൽക്കാനും നീക്കമുള്ളതായി ധനമന്ത്രി പറഞ്ഞു

ബ്ജിറ്റ് സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്നും ഓരോ പൌരനും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

കൃഷി അടിസ്ഥാന സൌകര്യം ടെക്സ്റ്റൈൽസ് സാങ്കേതിക വിദ്യ എന്നീ നാല് മേഖലകൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്

ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയ്ക്ക് മുൻപിലുണ്ടായിരുന്ന എല്ലാ ഹർജികളിലും തീരുമാനമായി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേസിലെ നാല് പ്രതികളുടെയും മരണവാറന്റ് നീട്ടി വയ്ക്കുന്നതായി ഇന്നലെ ഡൽഹി കോടതി ഉത്തരവിട്ടിരുന്നു ഇന്ന് രാവിലെ ആറ് മണിക്കായിരുന്നു പ്രതികളായ മുകേഷ് കുമാർ സിംഗ് പവൻ ഗുപ്ത വിനയ് കുമാർ ശർമ്മ അക്ഷയ് കുമാർ എന്നീ നാല് പേരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടിയിരുന്നത്

ആദൃ വിമാനത്തിലെ ഡോക്ടർമാരുടെ സംഘം തന്നെയാണ് ഇന്നു പുറപ്പെട്ട വിമാനത്തിലുള്ളത്

ഇതിനായി മനേസറിലും ചൌളാകൃാമ്പിലും സൈനിക സഹായത്തോടെ പ്രത്യേക നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

നിയമം സംബന്ധിച്ചുള്ള സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ഇതിലൂടെ പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിക്കാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നാല് ദിവസത്തെ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി കരവാൾ നഗർ ജഹാംഗീർ പുരി രോഹിണി എന്നിവിടങ്ങളിൽ നടക്കുന്ന ബി

സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തി